പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു

സ്വർണ്ണം പിടികൂടി

ആർ പരിശോധന കൂടി നടത്തും

റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം

കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് പ്രതികളായ സ്വപ്ന സുരേഷ് സന്ദീപ് നായർ ശരത് എന്നിവർക്കെതിരെ പ്രാഥമിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് കള്ളപ്പണം വെളുപ്പിച്ചതിന് വൃക്തമായ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം കുറ്റപത്രത്തിൽ വൃക്തമാക്കി

അതേ സമയം പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും

കോഴിക്കോട് ്ല്ലദേശി മുഹമ്മദ് അസീബ് കണ്ണൂർ പെരിങ്ങളം സ്വദേശ്രി ജ്സീല എന്നിവരെ കസ്റ്റംസ് പിടികൂടി

പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ അഷിമ ഗോയൽ ജയന്ത് വർമ ശശാങ്ക ദിഡെ എന്നിവരെ സമിതി അംഗങ്ങളായി കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുണ്ട്

ആർ പരിശോധന കൂടി നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

സി ആർ പഠനമനുസരിച്ച് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ദേശീയ ശരാശരിയെക്കാൾ താഴ്ന്ന നിലയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പദ്മകുമാർ ഇൻട്രോ സംസ്ഥാനത്ത് കോവിഡ് ലക്ഷണം പ്രകടമാക്കാത്തവരെയും നേരിയ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെയും നിബന്ധനകളോടെ വീടുകളിൽ ശുശ്രൂഷിക്കാൻ സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിൽ കോവിഡ് നിയന്ത്രണത്തിൽ ഗൃഹചികിത്സയും പ്രാധാന്യമർഹിക്കുന്നു ഇതിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലപ്പുഴ മെഡിക്കൽകോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസറായ ഡോ

പദ്മകുമാർ ആകാശവാണി വാർത്തകളോട്

കോവിഡ് പരിശോധനകൾ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൈറസ് വ്യാപനം തടയുന്നതിനായി നടത്തുന്ന പരിശോധനകളുടെ എണ്ണം നാലു ലക്ഷക്ക് പിന്നിട്ടു

ചക്കരക്കല്ല് ഇരിവേരിക്കടുത്ത് മുതുകുറ്റി സ്വദേശിയാണ് മരിച്ചത്

ഹൃദയ സംബന്ധമായ അസുഖത്തിന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു

കടകംപള്ളി സുരേന്ദ്രൻ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിയന്ത്രണം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

അഡ്വെൻചർ പാർക്കുകൾ ഹിൽ സ്റ്റേഷനുകൾ എന്നിവ തുറക്കുന്നതും പരിഗണിക്കും

എൽ പൊതുമേഖലാ സ്ഥാപനമായ കേരളാ മിനറൽസ് ആന്റ് മെറ്റൽസിൽ ഊർജ്ജക്ഷമത കൂടിയ നൂതന ഓക്സിജൻ പ്താന്റ് പ്രവർത്തനക്ഷമമായി

സൌജനൃ കിറ്റ് സംസ്ഥാന സർക്കാർ നൽകുന്ന സെപ്റ്റംബർ മാസത്തെ സൌജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങാൻ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടു ദിവസം കൂടി അവസരം നാളെ കൂടി കിറ്റ് വാങ്ങാമെന്ന് അധികൃതർ അറിയിച്ചു

ശശിധരൻ

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ടിക്കറ്റ് റിസർവേഷൻ രണ്ടു മണിക്കൂർ മുൻപ് വരെയാക്കി പുനഃക്രമീകരിച്ചിരുന്നു

എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്

ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു